നിക്ഷേപകരുടെ താൽപര്യം സംരക്ഷിക്കാനാണ് ഭേദഗതി ക്കൊണ്ടു വരുന്നതെന്ന് ധനമന്തി

ലോക്സഭയിൽ നേരത്തെ അംഗീകാരം ലഭിച്ച ബിൽ രാജ്യസഭയും ഇന്ന് പാസ്സാക്കുകയായിരുന്നു കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോ ഹർഷ്വർധൻ ബില്ലിൻമേൽ നടന്ന ചർച്ചക്ക് മറുപടി നൽകി ആയുർവേദ പഠനവും പരിശീലനവും സംബന്ധിച്ച ദേശീയ പ്രാധാനൃമുള്ള കേന്ദ്രം സ്ഥാപിക്കുമെന്ന് ബില്ല് വൃവസ്ഥ ചെയ്യുന്നു ഗുജറാത്തിലെ ജംനഗറിലുള്ള മൂന്ന് ആയുർവേദ ഗവേഷണ സ്ഥാപനങ്ങളെ ലയിപ്പിക്കുന്നതും ബില്ലിലെ മറ്റൊരു വൃവസ്ഥയാണ് രാജ്യത്തിന്റെ പരമ്പരാഗത വൈദൃശാസ്ത്ര ശാഖയായ ആയുർവേദത്തെ കേന്ദ്രം പ്രോത്സാഹിപ്പിക്കുമെന്ന് ശ്രീ ഹർഷ്വർധൻ പറഞ്ഞു

നിക്ഷേപകരുടെ താൽപര്യം സംരക്ഷിക്കാനാണ് നിയമ ഭേദഗതി കൊണ്ടു വരുന്നതെന്ന് ധനമന്ത്രി പറഞ്ഞു

ബാങ്കുകളായി പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾക്കും ഈ നിയമം ബാധകമാണ് വാണിജൃ ബാങ്കുകളുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുമെന്നും ശ്രീമതി സീതാരാമൻ പറഞ്ഞു

കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ സഹകരണ ചെറുകിട നിക്ഷേപകരുടെ താൽപര്യം സംരക്ഷിക്കപ്പെട്ടതായും ധനമന്ത്രി പറഞ്ഞു ലോക് സഭയിൽ നടന്ന ചർച്ചയിൽ വിവിധ കക്ഷികളിലെ അംഗങ്ങൾ പങ്കെടുത്തു

ഇതിന്റെ ഭാഗമായുള്ള ധാരണാപത്രത്തിൽ സംസ്ഥാന വ്യവസായ വകുപ്പ് ചെറുകിട വ്യവസായ വികസന ബാങ്കായ സിഡ്ബിയുമായി ഒപ്പു വെച്ചു ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടന്ന ചടങ്ങിൽ വ്യവസായ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എം

ദാസും സിഡ്ബി ഡെപ്യൂട്ടി എം ഡി വി

സാമ്പത്തിക സഹായം മൂലധന സബ്സിഡി പലിശ സബ്സിഡി പേറ്റന്റ് കരസ്ഥമാക്കൽ എന്നിവ നൽകാനാണ് സിഡ്ബിയുമായുള്ള ധാരണാപത്രം ഉദ്ദേശിക്കുന്നതെന്ന് ശ്രീ രൂപാനി പറഞ്ഞു സാങ്കേതിക കൈമാറ്റം സാമ്പത്തിക സഹായം നൽകുന്നതിനുള്ള പുതിയ രീതികൾ വിപണി പിന്തുണ നവീകരണം സംബന്ധിച്ചു കാര്യങ്ങൾ എന്നിവയിൽ സിഡ്ബി ചെറുകിട സംരംഭകർക്ക് സഹായം നൽകും

കോവിഡ് രോഗികൾ ഏറ്റവുമധികമുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്

നാളെ രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിക്കുന്ന ഭൌതികശരീരം ആചാരപരമായ രീതിയിൽ പാങ്ങോട് ആസ്ഥാനത്തെ സൈനികർ ഏറ്റുവാങ്ങി വിലാപയാത്രയായി അനീഷിന്റെ ജന്മനാടായ കൊല്ലത്തെ വയലയിലെത്തിക്കും

അനീഷിന്റെ ജീവത്യാഗത്തിൽ ഗവർണൂർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവർ ആദരാഞ്ജലി അർപ്പിച്ചു

ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്

പാവപ്പെട്ടവർ പട്ടിണി കിടക്കാതിരിക്കാൻ സർക്കാർ കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷൃധാനൃങ്ങൾ നൽകുമെന്ന് ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു

വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് സംഘടിപ്പിച്ച വെബിനാറിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മന്ത്രി രാജ്യത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ നയമാണിത്

ആത്മഹത്യാ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് മാധ്യമങ്ങൾക്ക് ചട്ടങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഏർപ്പെടുത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു

ഇതിനുള്ള തീയതി നിശ്ചയിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമീഷൻ വിജ്ഞാപനമിറക്കി